രാജ്യത്തിന്റെ ശോഭനമായ ഭാവിയുടെ നെടുംതൂണുകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

എവിടെ ജോലി ചെയ്താലും മാതൃരാജ്യത്തിന്റെ ആവശൃങ്ങളെപ്പറ്റി യുവജനങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്ക് ണമെന്ന് പ്രധാനമന്ത്രി മദ്രാസ് ഐ ഐ ടി ബിരുദദിാന ്സമ്മേളനത്തെ നരേന്ദ്ര മോദി അഭിസംബോധന ചെയ്തു

സ്കൂൾ വിദ്യാഭ്യാസ ഗുണമേന്മ സൂചികയിൽ കേരളം ഒന്നാം സ്ഥാനത്ത്

കേരളത്തിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണം പൂർത്തിയായി

ചെന്നൈയിൽ മദ്രാസ് ഐ ഐ

കൂടുതൽ വിവരങ്ങളുമായി കവിത സുനു ഹോൾഡ് അവസരങ്ങളുടെ നാടായാണ് ല്ലോക്ം ഇന്ത്യയെ കാണുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇൌയിട്ടത്തെ അമേരിക്കൻ സന്ദർശന വേളയിൽ ലോകനേതാക്കളുമായി നടത്തിയ ആശയവിനിമയത്തിൽ നിന്നും തനിക്ക് ഇത് ബോധ്യപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു കഠിനാധാനത്തിലൂടെ അസ്സാ്ധ്യമായത് സാധ്യമാക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിദ്യാർത്ഥി സമൂഹമെന്ന് ശ്രീ

അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ്ഘടന എന്ന ലക്ഷ്യവുമായാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ വിദ്യാർത്ഥി സമൂഹത്തിന്റെ പങ്കാളിത്തം വിലപ്പെട്ടതും നിർണ്ണായകവുമാണ് ഗവേഷണത്തിനും വികസനത്തിനും അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത്

എല്ലാ യത്നങ്ങളും മാതൃരാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന ബോധം എല്ലാവരിലുമുണ്ട് ലോകത്തെവിടെയും ഇന്ത്യൻ സമൂഹം മികവിന്റെ മുദ്രയാണ് പതിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ ് സജീവമായി പങ്കെടുക്കണമെന്നും ശ്രീ

മികവു പ്രകടിപ്പിച്ച വിദ്യാർത്ഥികൾക്കുള്ള മെഡലുകളും സർട്ടിഫിക്കറ്റുകളും പ്രധാനമന്ത്രി വിതരണം ചെയ്തു

ഹർജികളിൽ അഞ്ചംഗ ബഞ്ച് നാളെ മുതൽ വാദം കേൾക്കും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ അധ്യക്ഷതയിലുള്ള ബഞ്ചാണ് തീരുമാനമെടുത്ത്

രമണ ജസ്റ്റിസുമാരായ എസ്

കൌൾ ആർ

പൊതുസുരക്ഷാ നിയമ പ്രകാരം ഫറൂഖ് അബ്ദുള്ളയെ തടവിലാക്കിയതിനെതിരെ സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത്

മുഖ്യമന്ത്രി മനോഹർ ലാൽ കർണാലിൽ നിന്ന് വീണ്ടും ജനവിധി തേടും

മുൻ ഹോക്കി ക്യാപ്റ്റൻ സന്ദീപ് സിംഗ് പെഹോവ മ്ൻ്ഡ്ലത്തിലും ഗുസ്തി താരം ബബിതാ ഫോഗട്ട് ദാദ്രി മണ്ഡലത്തിലും ജനവിധി തേടും

എ മാർക്ക് വീണ്ടും ്സീറ്റ് നൽകിയിട്ടുണ്ടെന്ന് ബിജെപി ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് ന്യൂഡൽഹിയിൽ പറഞ്ഞു

ഗ്രാമ വികസന മന്ത്രി പങ്കജ മുണ്ടെയുടെ സാന്നിധൃത്തിലാണ് അദ്ദേഹം ബിജെപിയിൽ ചേർന്നത് മറ്റ് കക്ഷികളിൽ നിന്നുള്ള നിരവധി പേരും ഇന്ന് ബിജെപിയിൽ ചേർന്നു

അടുത്ത ഫെബ്രുവരി അഞ്ച് മുതൽ എട്ട് വരെ ലക്നൌവിലാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്

ശിവകുമാറിന്റെ ജാമ്യ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ട്ടറോട് വിശദീകരണം തേടി

എക്സ് മീഡിയാ കേസിൽ മുൻ കേന്ദ്രമന്ത്രി പി

നിതി ആയോഗിന്റെ നിലവാര സൂചികയിലാണ് കേരളം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് കൂടുതൽ വിവരങ്ങളുമായി കവിതാ സുനു ഹോൾഡ് നിതി ആയോഗ് ഉപാധ്യക്ഷനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമാണ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സൂചിക പുറത്തുവിട്ടത് സമഗ്ര വിദ്യാഭ്യാസ ഗുണ മേന്മയിലാണ് കേരളം ഒന്നാം സ്ഥാനം നേടിയത് രാജസ്ഥാനാണ് കേരളത്തിന് പിന്നിൽ രണ്ടാം സ്ഥാനത്തുള്ളത്

ക്രമേണ പുരോഗതി നേടിയ വിഭാഗത്തിൽ ഹരിയാനയാണ് മുന്നിൽ

ചെറിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ സമഗ്രമായ പ്രവർത്തനങ്ങളിൽ മണിപ്പൂരിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത്

ക്രമമായി നേട്ടം കൈവരിച്ച സംസ്ഥാനങ്ങൾ വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളതെന്ന് നിതി ആയോഗ് സി ഇ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നാളെയാണ് സൂക്ഷ്മ പരിശോധന

മത്സര ചിത്രം വ്യക്തമായതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷനുകളും സജീവമായി

നഷ്ടപരിഹാരം നൽകുന്ന കാരൃത്തിലും കോടതി തീരുമാനമനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയാണെന്ന് ഓഫീസ് അറിയിച്ചു

വാദം കേൾക്കാൻപോലും ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബഞ്ച് തയ്യാറായില്ല് അതിനിടെ ഫ്ളാറ്റുകളിൽ ഒഴിപ്പിക്കൽ നടപടി തുടരുകയാണ് ഈ ഇന്നലെ മുതൽ താമസക്കാർ ഒഴിഞ്ഞുതുടങ്ങി

കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറ്റ്നയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് സ്ഥിതി വി്ലയിരുത്തി കേന്ദ്രം ബിഹാറിന് എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു

ന്യൂഡൽഹിയിൽ ആയുഷ്മാൻ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

സമാന രീതിയിലുള്ള പദ്ധതി ആവിഷ്കരിക്കാൻ പല രാജ്യങ്ങളും ശ്രമിക്കുകയാണെന്ന് ശ്രീ

ന്യൂഡൽഹിയിൽ സംസ്ഥാന നൈപുണ്യ വികസന മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡെയാണ് ഇക്കാര്യം അറിയിച്ചത്

ജയ് ഭഗവാൻ ബോറിയെ ഭരണസമിതിയുടെ എല്ലാ അധികാരങ്ങളോടും കൂടിയ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു